പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഡെറാഡൂണിൽ ഇന്ന് ഉദ്ഘാടനം ചെയ്യും

ചുഴലിക്കാറ്റ് ഒമാൻ തീരത്തേക്ക് നീങ്ങുമെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം

സുൽത്താൻ ഓഫ് ജോഹർ കപ്പ് പുരുഷ ജൂനിയർ ഹോക്കിയിൽ ഇന്ത്യ ഇന്ന് ന്യൂസിലാന്റിനെ നേരിടും

സംസ്ഥാനത്തെ നിക്ഷേപ സാധൃതകൾ വർദ്ധിപ്പിക്കുന്ന തിന്റെ ഭാഗമായി നടത്തുന്ന പരിപാടിയിൽ പ്രമുഖ കമ്പനികൾ പങ്കെ ടുക്കും ജപ്പാൻ ചെക്ക് റിപ്പബ്ലിക് അർജന്റീന മൌറീഷ്യസ് നേപ്പാൾ തുടങ്ങിയ രാജ്യങ്ങളിലെ പ്രതിനിധികളും പങ്കെടുക്കും എഴുപതിനായിരം കോടി രൂപയുടെ നിക്ഷേപത്തിന് ഇതിനകംതന്നെ നിർദ്ദേശങ്ങൾ ലഭിച്ചതായി മുഖ്യമന്ത്രി ത്രിവേന്ദ്ര സിംഗ് റാവത്ത് പറഞ്ഞു കേന്ദ്രമന്ത്രിമാരായ നിതിൻഗഡ്കരി പിയൂഷ് ഗോയൽ രവിശങ്കർ പ്രസാദ് അൽഫോൺസ് കണ്ണന്ത്രാനം സി

നാളെ നടക്കുന്ന സമാപന യോഗ്ലാ് പ്രക്കേന്ദ്രമന്ത്രി രാജ്നാഥ്സിംഗ് ഉദ്ഘാടനം ചെയ്യും

മദ്ധ്യ ഏഷ്യൻ രാജ്യത്തേ ക്കുള്ള രാഷ്ട്രപതിയുടെ ആദൃ യാത്രയാണ് ഇത് ഇരുരാജൃങ്ങളും തമ്മിലുള്ള ബന്ധം ശക്തിപ്പെടുത്താൻ തജിക്കിസ്ഥാനിലെ ഉന്നതതല നേതാക്കളുമായി അദ്ദേഹം ചർച്ച നടത്തും താജികിസ്ഥാൻ പ്രസിഡന്റ് എമോമാലി റഹ്മോൻ ഉൾപ്പെടെയുള്ളവരുമായി രാഷ്ട്രങ്ങ പതി ചർച്ച നടത്തുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു പ്രധാഹി നമന്ത്രി കൊഹിർ റസുൽസോദയുമായും രാഷ്ട്രപതി കൂടിക്കാഴ്ച നടത്തും

രാജസ്ഥാൻ മധ്യപ്രദേശ് മിസോറം തെലങ്കാന എന്നിവിടങ്ങളിൽ ഒറ്റഘട്ടമായും ഛത്തീസ്ഗഡിൽ രണ്ട് ഘട്ടമായും തെരഞ്ഞെടുപ്പ് നടക്കും

റാവത്ത് അറിയിച്ചു

പാർട്ടി പ്രസിഡന്റ് അഖിലേഷ്ക് യൂദ്വ് ലഖ്നൌവിൽ ഇന്നലെ അറിയിച്ചതാണിക്കാര്യം ഗ്രോണ്ട്പാന ഗണതന്ത്ര പാട്ടിയും ബി

അതേസമയം മധ്യപ്രദേശിൽ സമാജ്വാദി പാർട്ടിയുമായി സഖ്യത്തിനില്ലെന്ന് കോൺഗ്രസും വ്യക്തമാക്കി

ലോക്സഭാ സ്പീക്കർ സുമിത്രാ മഹാജൻ ആസം മുഖ്യമന്ത്രി സർബാനന്ദ് സോനോവാൾ എന്നിവർ ഉദ്ഘാടന ചടങ്ങിൽ സംബന്ധിയ്ക്കും സ്ത്രീ ശാക്തീകരണം സാമ്പത്തിക വളർച്ച നൈപുണ്യ വികസനം എന്നിവ കൂടാതെ സംസ്ഥാനങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഇതര വിഷയങ്ങളെക്കുറിച്ചും നാല് ദിവസം നീണ്ടു നിൽക്കുന്ന സമ്മേളനം ചർച്ച ചെയ്യും

കഴിഞ്ഞ മാസം ഉത്തർപ്രദേശിൽ ഇയാൾ അറസ്റ്റിലായിരുന്നു പോലീസ് ഇയാളെ ചോദ്യാ ചെയ്തുവരികയാണ് ഖമറുമായി ബന്ധമെന്ന് ആരോപണമുള്ള എട്ട് പേരെ അസം പോലീസ് ഇതിനകം കസ്റ്റഡിയിലെടുത്തിരുന്നു

കുമാരസ്വാമി കേന്ദ്ര ഭക്ഷ്യവകുപ്പ് മന്ത്രി രാംവിലാസ് പാസ്വാനുമായി ഡൽഹിയിൽ നട ത്തിയ കൂടിക്കാഴ്ചയിലാണ് തീരുമാനം

പ്രദേശത്ത് ആയുധ ധാരികളായ ഭീകരരുടെ സാന്നിദ്ധ്യം ഉണ്ടെന്ന വിവരത്തെ തുടർന്നാണ് തെരച്ചിലെന്ന് ഔദ്യോഗിക വൃത്തങ്ങൾ അറിയിച്ചു ഭീകരരുമായുള്ള ഏറ്റുമുട്ടലോ പ്രദേശവാസികളുമായുള്ള തർക്കങ്ങളോ ഇതുവരെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല

ആനന്ദ്നാഗ് കുൽഗാം പുൽവാമ ഷോപ്പിയാൻ എന്നീ ജില്ലകളിലാണ് സർവ്വീസ് നിരോധിച്ചിട്ടുള്ളത്

സേന പോലീസ് സി

മറ്റ് സുരക്ഷാ ഏജൻസികൾ എന്നിവയിൽ നിന്നുള്ള ് മുതിർന്ന ഉദ്യോഗസ്ഥരും യോഗത്തിൽ സംബന്ധിച്ചു ശീതകാല സൈനികതന്ത്രം ഭീകരവിരുദ്ധ പ്രവർത്തനം മറ്റ് പ്രധാന വിഷയങ്ങൾ എന്നിവ ചർച്ചാവിഷയമായി സേനയുടെ സുരക്ഷാ പ്രവർത്തനങ്ങളെ ഗവർണർ അഭിനന്ദിച്ചു

സംസ്ഥാനത്തെ പട്ടണങ്ങളുടെയും ഗ്രാമങ്ങളുടെയും വികസനം അവിടുത്തെ പ്രാദേശിക പ്രതിനിധികളുടെ ഉത്തരവാദിത്തമാണെന്നും അദ്ദേഹം പറഞ്ഞു

എന്നാൽ കേരളത്തിൽ ജാഗ്രതാ നിർദ്ദേശം തുടരും കൂടുതൽ വിവരങ്ങളുമായി ലിൻസ

എന്നാൽ തീവ്ര ന്യൂനമർദ്ദത്തെ തുടർന്ന് തമിഴ്നാട് പോണ്ടിച്ചേരി എന്നിവിടങ്ങളിൽ പലയിടത്തും ശക്തമായ മഴ ലഭിച്ചു കേരളത്തിൽ നാളെ വരെ കനത്ത മഴയ്ക്ക് സാധ്യതയുണ്ട് മലപ്പുറം ഇടുക്കി വയനാട് പാലക്കാട് പത്തനംതിട്ട ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് തുടരും

ശക്തിയാർജ്ജിച്ചേക്കുമെന്ന മുന്നറിയിപ്പുകളുടെ മഴ അടിസ്ഥാനത്തിൽ ഇന്നലെ ഇടുക്കി ചെറുതോണി ഡാം തുറന്നു

ഇന്ത്യയ്ക്ക് വേണ്ടി ഹർമൻജിത് സിംഗ് ഷിലാനന്ദ് പ്ലക്ട്ര് എന്നിവരാണ് ഗോളുകൾ ഇന്നലെ നടന്ന് മറ്റ് രണ്ട് മത്സരങ്ങളിൽ ജപ്പാൻ നേടിയത് ഓസ്ട്രേലിയയേയും ഇംഗ്ലണ്ട് ന്യൂസിലാന്റിനേയും പരാജയപ്പെടുത്തി

മത്സരാർത്ഥികളുടെ വേദി അവസാനിക്കുന്നില്ലെന്നും ഇവിടെ റഷ്യയിലും ചൈനയിലും നടക്കുന്ന അന്തർദേശീയ മത്സരങ്ങളിലും പങ്കെടുത്ത് വിജയിക്കണമെന്നും സമ്മാനദാന ചടങ്ങിനിടെ കേന്ദ്രമന്ത്രി പറഞ്ഞു വിവിധ നൈപുണൃ മേഖലയിലെ പ്രഗത്ഭരെ കണ്ടെത്തി അവരെ അംഗീകരിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക എന്നതാണ് ഇന്തൃ ്സ്കിൽസ് മത്സരത്തിന്റെ ലക്ഷ്യം

ലൈംഗിക ആരോപണങ്ങളെ തുടർന്ന് കവനോയെ സുപ്രീംകോടതി ജഡ്ജിയാക്കുന്നതിനെതിരെ ശക്തമായ എതിർപ്പുണ്ടായിരുന്നു